ശക്തിയായി ഇന്ത്യ മാറുമെന്ന് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി

മിസോറം മുഖ്യമന്ത്രിയായി എം

സൊറാം താങ്ക ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ എ ടി

കൌണ്ടറുകൾ അടച്ചു പൂട്ടില്ലെന്ന് ധനകാര്യ സഹമന്ത്രി ശിവ്പ്രതാപ് ശുക്തു

സ്ഥാനമൊഴിയും പുറത്താക്കിയ പ്രധാനമന്ത്രി റിനിൽ വിക്രമ സിങ്കെ പുതിയ ഗവൺമെന്റിന് രൂപം നൽകും

പോരാട്ടങ്ങൾ ഇന്ന് ബെൽജിയം ഇംഗ്ലണ്ടിനെയും ആസ്ട്രേലിയ നെതർലാന്റ്സിനെയും നേരിടും

ഐയുടെ വാർഷിക് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ദശതമാനമായി നിലനിർത്തും രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട നിരവധി മേഖലകളുണ്ടെന്നും വായ്പ ലഭൃത അഭിപ്രായപ്പെട്ടു മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം മൊത്തആഭ്യന്തര ഉത്പ്പാദനത്തിൽ ഉടൻതന്നെ ഇന്ത്യ ബ്രിട്ടനെ മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റിസർവ് ബാങ്കിന്റെ സ്വയം ഭരണവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഗവൺമെന്റ് ബഹുമാനിപ്പിക്കുന്നുണ്ടെന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു

മൂന്നാംതവണയാണ് സോറാം താംങ്ക മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുന്നത് ഐസ്വാളിലെ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ കുമ്മനം രാജശേഖരൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലികൊടുക്കും

അന്തർസംസ്ഥാന റോഡ് നിർമ്മാണം പോലീസ് സേനയുടെ ആധുനികവൽക്കരണം ഉൾപ്പടെയുള്ള നിരവധി വിഷയങ്ങൾ ഇരുനേതാക്കളും സംസ്ഥാനങ്ങളിലെ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്രഗവൺമെന്റ് കൈകൊണ്ട നടപടികളെ സർബാനന്ദ് സോനോവാൾ പ്രകീർത്തിച്ചു ഇതോടൊപ്പം ഇൻഡോ ബംഗ്ളാദേശ് അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽക്കുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് അസംമുഖ്യമന്ത്രി നന്ദി അറിയിച്ചു

ടി എമ്മുകൾ അടച്ചു പൂട്ടില്ലെന്ന് കേന്ദ്രധനകാര്യമന്ത്രി ശിവ് പ്രതാപ് ശുക്ല അറിയിച്ചു ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അടുത്തവർഷം മാർച്ചോടെ രാജ്യത്ത് നിലവിലുള്ള എ ടി എം മെഷീനുകളിൽ പകുതിയോളം മെഷീനുകളുടെ പ്രവർത്തനം നിലയ്ക്കുമെന്ന എ ടി എം ഇൻഡസ്ട്രി കോൺഫെഡറേഷന്റെ റിപ്പോട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം രാജ്യത്ത് പൊതുമേഖല ബാങ്കുകളിൽ മൊബൈൽ ബാങ്കിംഗ് ഉൾപ്പടെയുള്ള ആധുനിക ഡിജിറ്റൽ സൌകര്യങ്ങൾ ലഭ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ബി

കിട്ടാക്കടങ്ങളും നിഷ്ക്രിയ ആസ്തികളും എഴുതിത്തള്ളുക എന്നത് ബാങ്കുകൾ അനുവർത്തിച്ചു വരുന്നതാണ് ബാലൻസ് ഷീറ്റിൽ കിട്ടാക്കടം നികുതി മൂലധനം എന്നിവ ക്രമപ്പെടുത്താനായാണ് ബാങ്കുകൾ ഈ രീതി അവലംബിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

വായ്പയെടുത്തവർ സമയബന്ധിതമായി അത് തിരിച്ചടയ്ക്കാത്തതും അഴിമതിയും സാമ്പത്തിക മാന്ദ്യവും എല്ലാം ബാങ്കുകളുടെ കിട്ടാക്കടം വർദ്ധിപ്പിച്ചു

ബി

ഐയുടെ കണക്കുകൾ ഉദ്ധരിച്ച് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു

ഗുജറാത്ത് ഗവർണർ ഓംപ്രകാശ് കോഹ്ലി മുഖ്യമന്ത്രി വിജയ് രൂപാനി ക്ട്രൂന്ദമ്ന്ത്രി പിയൂഷ് ഗോയൽ തുടങ്ങിയവർ രാഷ്ട്രപതിയെ അനുഗമിക്കും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്റ്റാച്ച്യൂ ഓഫ് യൂണിറ്റിയിൽ ഇന്ന് പൊതുജനങ്ങൾക്ക് പ്രിപ്പേശനം ഉണ്ടായിരിക്കില്ല ലോകത്തിലെ ഏറ്റവും വലിയപ്രതിമയ്ാണ് സ്റ്റാച്ച്യൂ ഓഫ് യൂണിറ്റി

ന്യൂഡെൽഹിയിൽ സോഷ്യൽ എന്റർപ്രൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക സംരഭകത്തിന് ഉത്തമ ഉദാഹരണമാണ് ഖാദിയെന്നും സുസ്ഥിര വികസന മാതൃകയിൽ ഈ വ്യവസായത്തെ കൊണ്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തദ്ദേശീയ വിഭവങ്ങളെ പരമാവധി ഉപയോഗിച്ചാലേ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷത്ക്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ശ്രീ ഗിരിരാജ് സിങ് അഭിപ്രായപ്പെട്ടു

എസ് ഉദ്യോഗസ്ഥൻ രാകേഷ് അസ്താനയെ സി ബി ഐ യുടെ പ്രത്യേക ഡയറക്ടറായി നിയമിച്ച നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച തിരുത്തൽ ഹർജി സുപ്രീം കോടതി തള്ളി

തള്ളിയിരുന്നു

തമിഴ്നാടിന്റെ ആശങ്കകളെ ബിൽ പരിഗണിക്കുന്നില്ല എന്ന് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു അന്തർ സംസ്ഥാന കരാറുകൾ പ്രകാരം മുല്ലപ്പെരിയാർ ഉൾപ്പെടെ നാല് ഡാമുകളുടെ മേൽനോട്ടവും പ്രവർത്തനാ അവകാശവും തമിഴ്നാടിന് കീഴിലാണെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാബെഞ്ച് മുല്ലപ്പെരിയാറിന്റെ മേൽനോട്ടാധികാരം തമിഴ്നാടിന് അനുവദിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു

ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം വിതരണം ചെയ്ത പ്രസാദം കഴിച്ചവരാണ് മരിച്ചത് പ്രസാദത്തിൽ വിഷം കലർത്തി എന്നു സംശയത്തെ തുടർന്ന് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് പ്രിച്ചെയ്തു സംഭവത്തിൽ എച്ച്

ഉന്നതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു

ആദ്യ സെമി ഫൈനൽ മത്സരം ബെൽജിയവും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കും രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ നെതർലാന്റ്സിനെ നേരിടും നാളെയാണ് ഫൈനൽ മത്സരം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ ക്കുറിച്ചും ആഗോളമേഖലാ വിഷയങ്ങളും ഇരുനേതാക്കും ചർച്ചചെയും

മുംബൈയിൽ ഒബ്സർവർ റിസ്ട്രിച്ച് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ

ഐ സി യുടെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് ആർ ബി